പശ്ചിമ ബംഗാളിന് നിർണായക സംഭാവനകൾ നൽകാനാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ബെഗാൻ മത്സരം പുരോഗമിക്കുന്നു വിജയ് ഹസാരെ ഏകദിന ക്രിക്കറ്റിൽ കേരളത്തിന് തുടർച്ചയായ രണ്ടാം ജയം

പശ്ചിമ ബംഗാളിലെ ഫ്യൂഗ്ലിയിൽ നിരവധി റെയിൽവേ പദ്ധതികൾ നാടിന് സമർപ്പിക്കുകൃയ്യിര്കുന്നു പ്രധാനമന്ത്രി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുമായും അയൽരാജ്യങ്ങളുമായും ബിസിനസ്സ് ബന്ധം സ്ഫ്രാപ്പിക്കാൻ പശ്ചിമബംഗാളിന് അനന്ത സാധൃതകളുണ്ട് ഇത് ല്ക്ഷ്യം വെച്ച് സംസ്ഥാനത്തെ റെയിൽ വികസനത്തിന് വൻപ്രാധാനൃമാണ് കേന്ദ്രസർക്കാർ നൽകുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു നോവാപാർ മുതൽ ദക്ഷിണേശ്വർ വരെ ദീർഘിപ്പിച്ചു മെട്രോപാത പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു

പ്രാദേശിക ഭാഷയിലുള്ള അധ്യായനം ആദിവാസി ജനവിഭാഗങ്ങൾക്കും മറ്റും ഒട്ടേറെ ജനവിഭാഗങ്ങൾക്കും ഗുണകരമാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

ആരോഗൃ പരിപാലന മേഖല റോഡ് ഗതാഗതം വിദ്യാഭ്യാസം തുടങ്ങി വികസനത്തിന്റെ സമസ്ത മേഖലകളും മുൻകാല സർക്കാരുകൾ അവഗണിച്ചിരിക്കുകയാണ്

കാർഷിക മേഖലയിൽ ആധുനികവത്ക്കരണം നടപ്പാക്കാൻ സർക്കാർ ശ്രമിക്കുന്നു വിനോദ സഞ്ചാരം കൈത്തറി കരകൌശലം തുടങ്ങിയ മേഖലകളിൽ വികസനം ഉറപ്പാക്കാനായി സംസ്ഥാനത്തിന് സ്വയം പര്യാപ്തത കൈവരിക്കാനാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു അസമിലെ ധേമാജിയിൽ എണ്ണ പ്രകൃതി വാതക മേഖലയിലെ സുപ്രധാന പദ്ധതികൾ പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചു പുതിയ എഞ്ചിനീയറിംഗ് കോളേജിനും ശ്രീ നരേന്ദ്രമോദി തുടക്കമിട്ടു ബോംഗേഗാവ് റിഫൈനൈറിയിലെ യൂണിറ്റ് മധുബനിലെ സെക്കന്ററി ടാങ്ക് ഫാം എന്നിവയും പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചു

വികസനം ത്വരിതപ്പെടുത്താൻ സംസ്ഥാനത്ത് ഭരണമാറ്റം അനിവാര്യമാണെന്ന് ഹുഗ്ലിയിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി പറഞ്ഞു

തെരഞ്ഞെടുപ്പ് ആസന്നമായ പശ്ചിമബംഗാളിൽ ഏരു മാസത്തിനിടെ ഇത് രണ്ടാം തവണയാണ് പ്രധാനമന്ത്രി സന്ദർ ്കൂനം നടത്തുന്നത്

വിശദാശങ്ങളിലേക്ക് വോയിസ് പ്രതിരോധ ഉൽപ്പന്നങ്ങൾ ആഭ്യന്തര ഉല്പാദനവും ഗവേഷണം തുടങ്ങിയ മേഖലകളിൽ സ്വകാര്യ സംരംഭകർക്ക് സർക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കാനാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

ഇറക്കുമതിയിൽ നിന്ന് കയറ്റുമതിയിലേക്കുള്ള യാത്രയിൽ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്കും സ്റ്റാർട്ടപ്പൂകൾക്കും മികവുറ്റ പിന്തുണ നൽകാനാകും ചെറുകിട ഇടത്തരം വൃവസായ മേഖലയുടെ വികസനത്തിനും പരിഷ്ക്കരണ നടപടികൾക്കും സർക്കാർ ഒട്ടേറെ പ്രാധാനൃമാണ് നൽകുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ബജറ്റിലെ പ്രത്യേക മൂലധനം രാജ്യത്തെ പ്രതിരോധ വൃവസായത്തിന് കരുത്ത് പകരുമെന്ന് രാജൃരക്ഷാമന്ത്രി രാജ്നാഥ് സിങ് അഭിപ്രായപ്പെട്ടു

നിയമസഭയിൽ കോൺഗ്രസ് സർക്കാരിന് ഭൂരിപക്ഷം തെളിയിക്കാനായില്ലെന്ന് നിയമസഭാ സ്പീക്കർ വൃക്തമാക്കി തുടർന്ന് മുഖ്യമന്ത്രി വി നാരായണ സാമി രാജ്ഭവനിലെത്തി രാജി സമർപ്പിക്കുകയായിരുന്നു നേരത്തെ സ്പീക്കർ നിയമസഭ അനിശ്ചിതകാലത്തേക്ക് പിരിച്ചു വിട്ടിരുന്നു

ഇന്ന് ഒരു പുതിയ ഹോട്ട് സ്പോട്ടാണുള്ളത് ഒരു പ്രദേശത്തെ ഹോട്ട് സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി

കണ്ണൂർ ജില്ലയിലെ വിജയയാത്രയുടെ സമാപന സമ്മേളനം കേന്ദ്ര സഹമന്ത്രി വി

അഴിമതി സംസ്കാരം കേരളത്തിൽ തെരഞ്ഞെടുപ്പിന് മുൻപ്പ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും യഥാർത്ഥ സ്വത്ത് വിവരങ്ങൾ പ്ര്സ്യപ്പെടുത്താൻ തയ്യാറാവണമെന്നും വിജയയാത്ര കണ്ണൂരിൽ പ്രവേശിക്കുന്നതിന് മുന്നോടിയായി സുരേന്ദ്രൻ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു

മാണി സി കാപ്പൻ പാർട്ടിയുടെ പ്രസിഡന്റും ബാബു കാർത്തികേയൻ വർക്കിംഗ് പ്രസിഡന്റും ആകും

പാല ഉൾപ്പടെ മൂന്ന് സീറ്റ് യുഡിഎഫിനോട് ആവശ്യപ്പെടുമെന്നും അത് യുഡിഎഫ് അംഗീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് മാണി സി കാപ്പൻ പറഞ്ഞു

സംസ്ഥാന അദ്ധ്യക്ഷൻ ഉൾപ്പടെ മാറിയില്ലെങ്കിൽ പാർട്ടി വിടുമെന്ന് ഒരു വിഭാഗം നിലപാട് അറിയിച്ചു

എൽ ഫുട്ബോളിൽ ഹൈദ്രബാദ് എ